രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാർണ് രംഗം സജീവമായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എൻ

അഗസ്റ്റ വെസ്റ്റ് ലാൻഡ് ഹെലികോപ്ടർ ഇടപാട് കേസിലെ പ്രതി ക്രിസ്റ്റൻ മിഷേലിന് ഡൽഹി കോടതി ജാമൃം നിഷേധിച്ചു

പശ്ചിമബംഗാളിൽ പല ബൂത്തുകളിലും അക്രമം ഉണ്ടാരിയ്ക്കീലും മികച്ച പോളിംഗാണ് നടന്നത്

പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്

ജെ പി പ്രസിഡന്റ് അമിത്ഷാ കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യാപൃതരാണ്

കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെ ഈ ജില്ലകളിൽ ഒഴികെ മറ്റൊരിടത്തും ബോംബ് സ്ഫോടനങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ശ്രീ മോദി പറഞ്ഞു

കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി ഉത്തർപ്രദേശിലെ ബദൌനിൽ പൊതുതെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസ്ക് ബ്രാധന ചെയ്തു

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥമാണ് സമ്മേളനം

തിരുവനന്തപുരത്തെ പരിപാടിക്ക് ശേഷം ഇന്ന് തന്നെ പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് തെരഞ്ഞെടുപ്പ് റാലിയെ ചെയ്തിരുന്നു

കനത്ത സുരക്ഷാക്രമീകരണങ്ങളാണ് തലസ്ഥാനത്ത് പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത്

മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അന്തിമ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്ചൂരം

ആന്റണി ശനിയാഴ്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ യുഡിഎഫ് പ്രചാരണ യോഗങ്ങളിലും പങ്കെടുക്കും ഇന്ന് വൈകിട്ട് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ കുറ്റിപ്പും എന്നിവിടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ സി

ഐഎം പോളിറ്റ് ബ്യുറോ അംഗം പ്രകാശ് കാരാട്ട് ഇന്ന് പാലക്കാട് ജില്ലയിലെ വിവിധ തെരെഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു

ജെ

നേതാവും ന്യൂനപക്ഷ കാര്യ മന്ത്രിയുമായ മുഖ്തർ അബ്ബാസ് നഖ്വിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി ഈ മാസം മൂന്നിന് ഉത്തർപ്രദേശിലെ രാംപൂരിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ നടത്തിയ പരാമർശത്തിന്മേലാണ് വിലക്ക് രാഷ്ട്രീയ പ്രചാരണത്തിനായി പ്രതിരോധ സേനയെ ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കണം ഭാവിയിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീ നഖ്വിയോട് പറഞ്ഞു

അദ്ദേഹത്തിന്റെ വിസ കാലാവധി കഴിഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിസാ നിയമം ലംഘിച്ചു എന്ന കുറ്റത്തിന് ഇയാൾക്കെതിരെ മതിയായ നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രാലയം അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വെസ്റ്റ് ബംഗാളിൽ രാഷ്ട്രീയ പ്രചാരണത്തിനെത്തിയ ബംഗ്ലാദേശി നടൻ ഫെർഡസ് അഹമ്മദിന്റെ ബിസിനസ് വിസ മന്ത്രാലയം ചൊവ്വാഴ്ച ക്യാൻസർ ചെയ്തിരുന്നു ഇയാൾക്കെതിരെ ലീവ് ഇന്ത്യ നോട്ടീസും ഇന്ത്യ പുറപ്പെടുവിച്ചിരുന്നു

ബി എസ്

ഇത് സംബന്ധിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സിബി എസ്

പുസ്തകത്തിൽ നിലവിലുള്ള എല്ലാം അദ്ധ്യായങ്ങളും പഠിപ്പിക്കുമെന്നും മൂല്യനിർണ്ണയത്തിൽ ി ഉൾപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി

കേസന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെയും സി ബി ഐയുടെയും കസ്റ്റഡിയിലാണ് ഇപ്പോൾ മിഷേൽ ഏഴ് ദിവസത്തേക്കുള്ള ഇടക്കാല ജാമ്യപേക്ഷ പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാർ തള്ളി മിഷേലിന് ജാമ്യം അനുവദിച്ച് പുറത്ത് വന്നാൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്താകാൻ ഇടയുണ്ടെന്ന് സിബിഐയുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡി

മംഗൾപാറ പറഞ്ഞു

ജെ പി എം

എ ഭീമാമണ്ടാവിയെയും നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വധിച്ച കേസിലെ പ്രതികളാണ് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളെന്ന് പോലീസ് പറഞ്ഞു

ഇവരിൽ നിന്നും രണ്ടു തോക്കുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്

അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് രൂപയുടെ സഹായം രാജ്യത്തിന് ലഭിക്കുന്നതിനുള്ള ശ്രമം പൂർത്തീകരിക്കാതെയാണ് രാജി ഐ

എഫിന്റെ സാമ്പത്തിക പാക്കേജ് സംബന്ധിച്ച് അന്തിമ തീരുമാന്റമെട്ടുക്കാനുള്ള അമേരിക്കൻ സന്ദർശനത്തിന്ശേഷം അടുത്തിടെയാണ് ശ്രീ

താല്പര്യമില്ലെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു

കറാച്ചിക്കും